മുരളീധരൻ

ത ഐലീഗ് ഫുട്ബോളിൽ കോഴിക്കോട്ട് ഇന്ന് ഗോകുലം കേരള ഇന്ത്യൻ ആരോസ് മത്സരം റദ്ദാക്കി

ട്രെയിനുകൾ സംസ്ഥാന അതിർത്തി കടന്നാൽ ആദ്യം നിർത്തുന്ന സ്ഥലത്ത് യാത്രക്കാരെ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ അറിയിച്ചിരുന്നു റോഡ് വഴി സംസ്ഥാനത്തേക്ക് കടക്കുന്ന അതിർത്തി പോയിന്റുകളിലും പരിശോധന നടത്തുന്നുണ്ട്

രുമ കൊറോണാ വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് പത്ത് നിർദ്ദേശങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി ആരോഗ്യ രംഗത്തെ വിദഗ്ദ്ധരുമായി ചർച്ച നടത്തിയ ശേഷമാണ് നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകിയതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു ഗവൺമെന്റിന്റെ കൊറോണാ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളും അടിയന്തിരമായി സ്വീകരിക്കേണ്ട ചില പുതിയ മുൻകരുതലുമാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ

വിനോദ സഞ്ചാരികൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ദ്വീപ് വാസികളുടെ പരിപൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് അഡ്മിനിസ്ട്രേറ്റർ ദിനേശ്വർ ശർമ്മ ആവശ്യപ്പെട്ടു

വിദേശ സഞ്ചാരികൾക്കൊപ്പം ആഭ്യന്തര സഞ്ചാരികൾക്കും ദ്വീപ് സന്ദർശനത്തിന് താൽകാലിക വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആരോഗ്യവകുപ്പ് ഭരണകൂടത്തിന് ശുപാർശ നൽകി

മലപ്പുറം ജില്ലയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജനപ്രതിനിധികളും ആരോഗ്യ വകുപ്പ് ജീവനക്കാരുമായി കലക്ടറേറ്റിൽ നടത്തിയ വീഡിയോ കോൺഫറൻസിൽ മന്ത്രി അറിയിച്ചു രുമ കൊറോണ രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ വാർഡ് തലത്തിൽ റാപിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കും മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ കൽപ്പറ്റ കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം രേര എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഹെൽപ് ഡെസ്ക്കുകൾ ഇന്ന് പ്രവർത്തനമാരംഭിക്കും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകും

പെട്രോളിനും ഡീസലിനും ഇന്നലെ മൂന്ന് രൂപ വരെ എക്സൈസ് തീരുവ വർധിച്ചിരുന്നു രുമ മൊബൈൽ ഫോണുകളുടെ ജി

എസ് ടി കൌൺസിൽ യോഗം തീരുമാനിച്ചു

ഉത്തരവ് നടപ്പാക്കുന്നത് ഉറപ്പാക്കാൻ തിരുവല്ല സബ് കളക്ടർ അടൂർ ആർഡിഒ എന്നിവരെ ചുമതലപ്പെടുത്തി ദേദ പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നു തിരുവല്ല റയിൽവെ സ്റ്റേഷനിൽ യാത്രക്കാരുടെ പരിശോധനകൾ ആരംഭിച്ചു പൊലീസിനോടൊപ്പം ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും പാലിയേറ്റീവ് കെയർ വോളന്റിയന്മാരുടെയും നേതൃത്വത്തിലാണ് പരിശോധന ജില്ലയിലെ പ്രധാന ബസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടത്തും

സി ദേശീയ സമ്മേളനം മാറ്റിവെച്ചതായി ജനറൽ സെക്രട്ടറി അമർ ജിത്കൌർ അറിയിച്ചു

രുര കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് വിമാനസർവീസുകൾ നിർത്തി

എ ഇ ഒമാൻ ബഹ്റൈൻ വഴി സൌദിയിലേക്ക് പോയിരുന്ന കണക്ഷൻ വിമാനങ്ങളും സർവീസ് നിർത്തിയിട്ടുണ്ട് രേര കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കുവൈത്ത് ദോഹ റിയാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവ്വീസ് ഇന്നു മുതൽ നിർത്തി

വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പരിശോധന കർശനമായി തുടരുന്നു രുഭ ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ വാത്രിഗാം ഗ്രാമത്തിൽ സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ നാല് ഭീകരരെ വധിച്ചു സംയുക്ത സംഘം പ്രദേശം വളഞ്ഞ് നടത്തിയ നടപടിയിലാണ് ഒളിച്ചിരിക്കുകയായിരുന്ന ഭീകരരെ വധിച്ചതെന്ന് പൊലീസ് കേന്ദ്രങ്ങൾ അറിയിച്ചു ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് റിപ്പോർട്ട് രുര രാത്രിയാത്രാ നിരോധന വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രിയെ കാണാൻ സമയം ചോദിച്ച് നാലാംതവണയും കേരളം കത്തയച്ചു

കെ ശശീന്ദ്രൻ വീണ്ടും കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്

പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ കോഡൂർ സ്വദേശികളായ ഹനീഫ ഭാര്യ സുമയ്യ ഹനീഫയുടെ സഹോദരൻ ഷാജഹാൻ എന്നിവരാണ് മരിച്ചത് മലപ്പുറത്തുനിന്നും സുമയ്യയുടെ മുണ്ടക്കയത്തെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം

ഇന്ന് പുലർച്ചെ കേളകം വില്ലേജ് ഓഫീസിന് സമീപം ബാവലി പുഴയുടെ കരയിലാണ് മൃതദേഹം കണ്ടത് ഇവരുടെ ഭർത്താവിനെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു

സുസ്ഥിര ഉപഭോക്താവ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ വിഷയം

പനിയുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റി ദേദ ഐലീഗ് ഫുട്ബാളിൽ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കേണ്ടിയിരുന്ന ഗോകുലം കേരളയും ഇന്ത്യൻ ആരോസും തമ്മിലെ മത്സരം റദ്ദാക്കി

ദേദ കവിയും ഭാഷാ പണ്ഡിതനുമായിരുന്ന പുതുശേരി രാമചന്ദ്രന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം ശാന്തികവാടത്തിൽ നടക്കും ഇന്നലെ വൈകീട്ടായിരുന്നു പുതുശ്ശേരി രാമചന്ദ്രന്റെ അന്ത്യം മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി ലഭിക്കാൻ പുതുശ്ശേരി നിസ്തുല ശ്രമങ്ങൾ നടത്തിയിരുന്നു

ഇത് വിജയകരമായി പൂർത്തിയാക്കുന്ന അധ്യാപകർക്ക് മാത്രമേ അവധിക്കാല പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയൂ കൊവിഡ് പശ്ചാത്തലത്തിൽ എൽ

പി ക്കാസുകളിലെ പരീക്ഷകൾ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് ഐ ടി പരിശീലനം

പുതുക്കിയ തീയ്യതി പിന്നീട് അറിയിക്കും ദരര ആരോഗ്യം വീണ്ടെടുക്കുകയാണെന്നും ഒരുമാസത്തിനകം പൊതു പരിപാടികളിൽ സജീവമാകുമെന്നും മുൻ മുഖ്യമന്ത്രിയും ഭരണപരിഷ്കാര കമ്മിഷൻ അധ്യക്ഷനുമായ വി

അച്യുതാനന്ദൻ അറിയിച്ചു

രുമ ജില്ലയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്ഥിതി അവലോകനം ചെയ്യുന്നതിനായി നാളെ കോഴിക്കോട്ട് മന്ത്രിതല യോഗം ചേരും മന്ത്രി കെ രാജുവിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം

കെ ശൈലജക്കെതിരെ ഫേസ്ബുക്കിൽ അപകീർത്തി പരാമർശം നടത്തിയ യുവാവിനെ പൊലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം വെട്ടത്തൂർ മണ്ണാർമല സ്വദേശി കൈപ്പിള്ളി അൻഷാദാണ് അറസ്റ്റിലായത് ദരര ആരോഗ്യ വിഭാഗത്തിന്റെയും വിവിധ വകുപ്പുകളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയോടെ കാസർകോട് ജില്ലയിൽ കൊറോണ വൈറസ് വ്യാപനം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇത് ഫല പ്രദമാക്കാൻ അതീവ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാസർകോട്ട് പറഞ്ഞു വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാതലത്തിൽ ഏകോപിപ്പിക്കുന്നതിനായി കലക്ട്രേറ്റിൽ യോഗത്തിൽ ചേർന്ന അവലോകന സംസാരിക്കുകയായിരുന്നു മന്ത്രി